സാംസ്കാരിക സ്ഥാനപതിമാരാണെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്

ആഘോഷിക്കുന്നു

കേരളത്തിൽ മഴ കുറയുന്നു ജാഗ്രത തുടരും

തെരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രദേശങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കശ്മീർ താഴ്വരയിൽ ശ്രീനഗർ മുൻസിപ്പൽ കോർപ്പറേഷൻ പരിധിയിലുള്ള മൂന്ന് വാർഡുകളിലും കൂപ്പവാര ഹങ്വാര ബന്ദിപൂർ ബുദ്ഗാം ബാരമുള്ള അനന്ത്നാഗ് മുൻസിപ്പൽ കമ്മിറ്റികളിലും ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കും കാർഗിൽ ലേ മുൻസിപ്പൽ കമ്മിറ്റികളിലും ആദ്യഘട്ടത്തിൽ വോട്ടിംഗ് നടക്കും ഈ തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലെ വോട്ടെടുപ്പിൽ ആദ്യമായിട്ടാണ് ഇലട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത്

രഹസ്യ ബാലറ്റ് സംവിധാനത്തിലൂടെയായിരുന്നു വോട്ടെടുപ്പ്

കഴിഞ്ഞ ദിവസം ്രാത്രി താജിക്കിസ്ഥാൻ തലസ്ഥാനമായ ദുഷാൻബേയിൽ ഇന്ത്യൻ ജനതയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം നൂറ്റാണ്ടുകളായി ഇരു രാജ്യങ്ങളും തമ്മിൽ മികുച്ച ബന്ധമാണുള്ളതെന്നും അദ്ദേഹം വൃക്തമാക്കി വൈദ്യുതി ശുദ്ധഊർജ്ജം ഡിജിറ്റൽവത്ക്കരണം എന്നീ മേഖലകളിൽ ഇന്ത്യൻ ഗവൺമെന്റ് നിരവധി കാര്യങ്ങൾ ചെയ്തതായും അദ്ദേഹം പ്രറഞ്ഞു രാജ്യങ്ങൾ തമ്മിലുള്ള വാണിജ്യം വർദ്ധിപ്പിക്കാനും ആളുകൾ തമ്മിലുള്ള ബന്ധം വർദ്ധിപ്പിക്കാനും ഇന്ത്യൻ ജനതയോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു ഔദ്യോഗിക സ്വീകരണ പരിപാടിക്കു ശേഷം താജിക്കിസ്ഥാൻ പ്രസിഡന്റ് ഇമാമൊലി റഹ്മാനുമായി രാഷ്ട്രപതി ഇന്ന് കൂടിക്കാഴ്ച നടത്തും

പരീക്ഷണാടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലകളിൽ ഇത് ഉടൻ നടപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി രാധാമോഹൻസിംഗ് അറിയിച്ചു ഇതിനുപുറമെ ഏതാനും പുഷ്പഫല സസ്യകൃഷിയേയും ഇതിന്റെ പരിധിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ജലദൌർലഭ്യം മണ്ണിടിച്ചിൽ പേമാരി തുടങ്ങിയവ മൂലമുള്ള നഷ്ടവും പരീക്ഷണാടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇൻഷുറൻസ് പരിധിയിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു വിവിധ വിഭാഗങ്ങളുമായി നടത്തിയ ചർച്ചകളെ തുടർന്ന് വിള ഇൻഷുറൻസ് പദ്ധതിയിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ടെന്നും ശ്രീ രാധാമോഹൻസിംഗ് അറിയിച്ചു

അസം മുഖ്യമന്ത്രി സർബാനന്ദ് സൊനൊവാൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സംസ്ഥാന നിയമസഭ അദ്ധ്യക്ഷൻ ഉപാദ്ധ്യക്ഷൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും

സ്ത്രീശാക്തീകരണം നൈപുണ്യവികസനം കലാപങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയ്ക്കു വരും

മുതിർന്ന ഉപാദ്ധ്യക്ഷൻ ദക്ഷിണ് കൊറിയയുടെ കിം ജോങ് യാങ് താത്ക്കാലിക അദ്ധ്യക്ഷ് സ്മാനം ഏറ്റെടുത്തു ഇന്റർപോളിന്റെ ആദ്യ ചൈനീസ് അദ്ധ്യക്ഷനായി മെങ് ഹോങ്വി നിയമ ലംഘനം നടത്തിയെന്ന ആരോപണത്തിനു വിധേയനായി പോലീസ് നിരീക്ഷണത്തിലായിരുന്നു ഇദ്ദേഹത്തിന്റെ ജീവനു ഭീഷണി നേരിട്ടിരുന്നോ എന്നു ഭയക്കുന്നതായി അദ്ദേഹം അയച്ച സന്ദേശം ഉദ്ധരിച്ച് ഭാര്യ വെളിപ്പെടുത്തി

വ്യോമസേനയ്ക്ക് മഹത്തായ പാരമ്പര്യമാണുള്ളത്

വ്യോമസേനാ ദിനത്തോട് അനുബന്ധിച്ച് ഖാസിയാബാദിലെ എയർഫോഴ്സ് സ്റ്റേഷനിൽ സ്ഥാനാരോഹണ ചടങ്ങും പരേഡും സംഘടിപ്പിച്ചിട്ടുണ്ട്

സമാപന സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി സംബന്ധിക്കും ഡിആർഡിഒ ഐഎസ്ആർഒ ഇന്ത്യൻ കാർഷിക ഗവേഷണ സംഘടന റെയിൽവെ ജൈവ സാങ്കേതിക വകുപ്പ് തുടങ്ങിയ മേളയിൽ സ്റ്റാളുകൾ ഒരുക്കിയിട്ടുണ്ട്

സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള ശാസ്ത്ര മേളകൾ സംഘടിപ്പിക്കണമെന്ന് കേന്ദ്രമന്ത്രി ഹർഷവർധൻ അഭ്യർഥിച്ചു

കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണ

എന്നാൽ കേരളത്തിലും ലക്ഷദ്വീപിലും മിക്ക സ്ഥലങ്ങളിലും ഇന്ന് മഴ പെയ്യും കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്കും സാധ്യതയുണ്ട്

കടൽ പ്രക്ഷുബ്ധമാകാനി ടയുള്ളതിനാൽ മീൻപിടുത്തക്കാർ അറബിക്കടലിന്റെ കിഴക്ക് മധ്യ മേഖലയിലും തെക്കു പടിഞ്ഞാറൻ പ്രദേശത്തും പോകരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്

റെഡ് അലർട്ട് പിൻവലിച്ചതും ഡാമിന്റെ വൃഷ് ടിപ്രദേശത്ത് മഴയില്ലാത്തതും നീരൊഴുക്ക് കുറഞ്ഞതുമായ സാഹചര്യത്തിലാണ് ഷട്ടർ അടച്ചത്

കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ജില്ലയിൽ പ്രപ്രാപിച്ചിരുന്ന റെഡ് അലർട്ടു പിൻവലിച്ചതിനാലും കനത്ത മഴയില്ലാത്തതുമായ സാഹചര്യത്തിലാണ് തീരുമാനം എന്നാൽ പൊതുജന സുരക്ഷ കണക്കിലെടുത്ത് മലയാരമേഖലയിലൂടയുളള രാത്രികാല യാത്ര ഇന്നും ഒഴിവാക്കണമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു

ഇതേ തുടർന്ന് ഇന്നും നാളെയും വിമാനത്താവളത്തിലേക്ക് സന്ദർശകരെ അനുവദിക്കുകയില്ലെന്ന് ചീഫ് സെക്യൂരിറ്റി ഓഫീസർ അറിയിച്ചു ബഹിരാകാശ ദിനം ബഹിരാകാശ ദിനാചരണത്തിന്റെ ഭാഗ്മായി വിവിധ ബഹിരാകാശദൌത്യ മാതൃകകളൂടെ പ്രദർശനത്തിന് ഇന്ന് പാലക്കാട്ട് തുടക്കമാകും മേഴ്സി കോളേജിൽ എം

വിക്രം സാരാഭായ് സ് പേസ് സെന്റർ ഐ

ഒ സിസ്റ്റം യൂണിറ്റ് ലികിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സ്നെൻ എന്നിവയുടെ നേതൃത്വത്തിലാണ് പ്രദർശനം

സിംഗിൾസ് കിരീടം ലാത്വിയൻ താരം അനസ്താസിയ സെവാസ്തോവയെ പരാജയപ്പെടുത്തിയതാണ് കരോലീൻ കിരീടം സ്വന്തമാക്കിയത്

ഗുണ്ടാപ്രവർത്തനും കൊള്ള അനാശാസ്യ പ്രവർത്തനം തുടങ്ങിയ നിയ്മവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാനുള്ള വ്യവസ്ഥകൾ ബില്ലിലുണ്ട്

വിദേശ വിമാനകമ്പനികളുടെ നിരക്ക് താരതമൃം ചെയ്ത് അടിയന്തിരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ വിവിധ വിമാന കമ്പനികളോട് സമിതി ആവശ്യപ്പെട്ടു ലഗേജ് നിരക്ക് സംബന്ധിച്ച് സമഗ്രമായ നയം ആവിഷ്ക്കരിക്കണമെന്ന് ഗതാഗത ടൂറിസം സാംസ്ക്കാരിക മന്ത്രാലയങ്ങൾക്കായുള്ള സമിതിയുടെ യോഗം ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു